നാളെ മിർസാപൂ രിൽ ബെൻസാഗർ കനാൽ പദ്ധതി പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും രദ്ദേഷ്ടങ പ്രധാനമന്ത്രി സന്ദർശനാനുമതി നൽകിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം ബുധനാഴ്ച ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും

ബുധനാഴ്ച രാവിലെ അമേരിക്ക യിൽ നിന്ന് തിരിച്ചെത്തുന്ന മുഖൃമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗ ത്തിന് ശേഷമായിരിക്കും ഡൽഹിയിലേക്ക് പുറപ്പെടുക മന്ത്രി പി തിലോ ത്തമൻ നിയമസഭയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓരോ പ്രതി നിധികൾ ചീഫ് സെക്രട്ടറി ഭക്ഷ്യ സെക്രട്ടറി തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരിക്കും കേരളത്തിന്റെ വെട്ടിക്കുറച്ച റേഷൻ ഭക്ഷ്യധാനൃ വിഹിതം പുനസ്ഥാപിക്കണമെന്നും കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറിയുടെ പ്രവർത്തനം തുടങ്ങണമെന്നും ആവശ്യപ്പെട്ടാണ് സർവകക്ഷി സംഘം പ്രധാ നമന്ത്രിയെ കാണുന്നത് രദ്ദേഷ്ടങ കഞ്ചിക്കോട് റയിൽ കോച്ച് ഫാക്ടറി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യു താനന്ദനെ കത്തിലൂടെ അറിയിച്ചു കോച്ചുകളുടെ ആവശ്യകതയും ഏതു തരം കോച്ചുകളാണ് വേണ്ടതെന്ന വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തി ലായിരിക്കും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവൂകയെന്ന് മന്ത്രി കത്തിൽ അറി യിച്ചു കോച്ച് ഫാക്ടറി സ്ഥാപിക്കുന്നതിൽ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് അലംഭാവം കാണിച്ചതായി കത്തിൽ കേന്ദ്രം അറിയിച്ചതായി വി എസ് അച്യുതാനന്ദന്റെ ഓഫീസ് തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്പിൽഓവർ പദ്ധതികൾ അടുത്ത വർഷം മുതൽ നിർത്തലാക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ

ഓരോ വർഷവും അനുവദിക്കുന്ന തുക അതാത് വർഷം ചെലവഴിക്കുന്ന രീതി പ്രോത്സാഹിപ്പിക്കാനാണ് ഇതെന്ന് അദ്ദേഹം തിരുവല്ലയിൽ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ ് പദ്ധതിത്തുക വിനിയോഗം സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി

ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇന്തൃ ഹിന്ദു പാക്കി സ്ഥാനാകുമെന്ന ഡോക്ടർ ശശി തരൂർ എം പി യുടെ പ്രസ്താവനയെ പിന്തു ണയ്ക്കുന്നതായി കെ

സി പ്രസിഡന്റ് എം

പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ശശി തരൂർ എം പിയുടെ പ്രസ്താവ നയിൽ തെറ്റൊന്നുമില്ലെന്നും അത് പ്രസക്തമായ വിഷയമാണെന്നും പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോഴിക്കോട്ട് പറഞ്ഞു

സി സി വൈസ് പ്രസിഡന്റ് വി

എന്നാൽ എ ഐ

സി തരൂരിന്റെ പരാമർശത്തെ പൂർണമായി അനുകൂലിച്ചിരുന്നില്ല രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഇടപാടുകാർക്ക് പെട്ടെന്ന് സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹകരണ ബാങ്കു കൾ കാലാനുസൃതമായി സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർദ്ദേശിച്ചു പുതുതലമുറ ബാങ്കുകൾ ഇത്ത രത്തിലാണ് ഇടപാടുകാരെ ആകർഷിക്കുന്നത് വട്ടിപ്പലിശക്കാരെ തടയുന്ന മുറ്റത്തെ മുല്ല പദ്ധതി സഹകരണ മേഖലയിലെ സേവന പ്രവർത്തനങ്ങൾക്ക് മികച്ച ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് അന്തർദേശീയ സഹകരണദിന സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു സ്പീക്കർ രുട്ട്ട്ട്ട്ട്ട്ട്ട്ട നഷ്ടത്തിന്റെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉപേക്ഷിക്കാനല്ല അവയെ സംരക്ഷിക്കുന്ന നയമാണ് ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി എ സി മൊയ്തീൻ വ്യക്തമാക്കി കൊച്ചി ഇരുമ്പനം ട്രാക്കോ കേബിൾ കമ്പനി യുടെ നവീകരണവും ഉത്പാദന വർദ്ധനാ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എസ് ആർ ടി സിയെ വൈദ്യുതി ബസ് അടക്കം നവീന ആശയങ്ങളോടെ സംരക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണെന്നും മന്ത്രി പറഞ്ഞു

ആലുവ സ്വദേശിയായ അനസിനെയാണ് ഇന്നലെ രാത്രി വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്

ഹവാല സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിലാണ് അനസ് ഉൾപ്പടെ അഞ്ചുപേർ പിടിയിലായത് രുട്ടിട്ട്ട്ട്ട്ട്ട സ്വകാരൃ കാറുകൾ ഉൾപ്പെടെ നാലുചക്ര വാഹനങ്ങൾക്ക് പെട്രോളും ഡീസലും ഒരേവിലയ്ക്ക് നൽകാൻ കഴിയുമോഎന്ന് അറിയിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഡീസൽ വാഹനങ്ങളിൽ നിന്ന് കൂടുതൽ മലിനീകരണം ഉണ്ടാകുന്നുവെന്ന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ അതോറിറ്റിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവി ഷൻ ബെഞ്ച് കേന്ദ്രത്തിന്റെ അഭിപ്രായം തേടിയത്

സെമിഫൈനൽ മത്സരങ്ങളിൽ പരാജയപ്പെട്ട ഇംഗ്ലണ്ടും ബെൽജിയവും രാത്രി ഏഴരയ്ക്ക് സെന്റ് പീറ്റേഴ്സ് ബർഗിൽ ഏറ്റു മുട്ടും ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഫൈനൽ നാളെ രാത്രി എട്ടരയ്ക്കാ ണ് മോസ്കോയിലെ ലുഷ്നിക്കി സ്റ്റേഡിയത്തിൽ ഫ്രാൻസും ക്രൊയേ ഷ്യയും ലോകകപ്പിനുവേണ്ടി പോരാടും ക്രൊയേഷ്യയുടെ ആദ്യ ഫൈനൽ പോരാട്ടമാണിത്

രദേഷ്ടെടു ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ലോഡ്സിൽ

ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് മത്സരം തുടങ്ങും ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു

സി മൊയ്തീൻ പറഞ്ഞു കൊച്ചി യിൽ ഓപ്പറേഷൻ ഒളിംപ്യ ബാഡ്മിന്റൺ പരിശീലന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ബ്രഹ്മചാരി മുകുന്ദ ചൈതനൃ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രവർത്തക ശിബിരം ഇന്ന് രാവിലെ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് അഞ്ചിന് കേസരി മുൻ പത്രാധിപർ എം എ കൃഷ്ണന്റെ നവതി ആഘോഷങ്ങൾ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാ ജൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനം നാളെ സമാപിക്കും രദേഷ്ടെടു രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘ ടിപ്പിക്കാൻ കെ

സി സി സാംസ്കാരിക വിഭാഗം വിചാർവിഭാഗ് തീരുമാ നിച്ചു

ചൊവ്വാഴ്ച രാവിലെ എട്ടരയ്ക്ക് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാമായണ പാരായണം ഉദ്ഘാടനം ചെയ്യും രാമായണം ആരുടെയും കുത്തകയല്ലെന്നും വിചാർവിഭാഗ് പരിപാടി നട ത്തുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു

മന്ത്രി എ കെ ബാലൻ കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ അവാർഡ്ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഫെലോഷിപ്പുകളും രാജ്യാന്തര നാടകോത്സവ മാധ്യമ പുരസ്കാരങ്ങളും ചടങ്ങിൽ നൽകും അമചാർ ലഘുനാടക മത്സരം പ്രവാസി അമചർ നാടക മത്സരം എന്നിവയിൽ ജേതാക്കളായവർക്ക് കലാമണ്ഡലം കല്പിത സർവ കലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ അവാർഡു കൾ വിതരണം ചെയ്യും

പട്ടയ വിതരണം നടത്താൻ നിശ്ചയിച്ച സ്ഥലത്തെ സംബന്ധിച്ച് കോടതിയലക്ഷ്യ കേസിനെ തുടർന്നാണ് മേള മാറ്റിയത് കോടതിയലക്ഷ്യ കേസ് തീർപ്പാക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ അഡക്കറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി അറിയിച്ചു

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട പത്തനംതിട്ട കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കടൂർ കടവ് മുണ്ട നോലി കടവ് പാലം മന്ത്രി ജി സുധാകരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും മണിമല യാറിന് കുറുകെ ഏഴേമുക്കാൽ കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മി ച്ചത്

കായലിൽ മാലിന്യം തള്ളുന്നതിനെതിരായ പരാതികളാണ് യോഗത്തിൽ പ്രധാനമായും ഉയർന്നത് പരാതികൾ പരിഗണിച്ച് കർശന പരിശോധനയും കുറ്റക്കാർക്കെതിരെ ശിക്ഷാനടപടിയും സ്വീകരിക്കണമെന്ന് സമിതി നിർദേശിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ജലന്ധർ ബിഷപ്പിനെതിരായ ലൈംഗികാരോപണ കേസിൽ പാലാ ബിഷപ്പിന്റെയും കുറുവിലങ്ങാട് പള്ളി വികാരിയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും ജലന്ധർ ബിഷപ്പ് പീഡനത്തിന് ഇരയാക്കിയെന്ന് കാണിച്ച് കർദിനാൾ ജോർജ് ആലഞ്ചേരി പാലാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കല്ലറങ്ങാട്ട് കുറുവിലങ്ങാട് പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കന്യാസ്ത്രീ ആരോപിച്ചിരുന്നു ദർവ്വക്ക കോഴിക്കോട് താമരശേരിക്കടുത്ത പുതുപ്പാടിയിൽ സ്ഥകാര്യ പണമിട പാട് സ്ഥാപന ഉടമയെ പെട്രോളൊഴിച്ച് തീയിട്ടു ഗുരുതരമായി പൊള്ളലേറ്റ സ്ഥാപന ഉടമ കുപ്പായക്കോട് ഒളവോക്കുന്നേൽ പി ടി കുരുവിളയെ മെഡി ക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന വെളിച്ചെണ്ണ പാലക്കാട്ടെ ചില മില്ലുകളുടെ പേരിലാക്കി വില്പന നടത്തുക യായിരുന്നു